മണ്ഡലമായ വാരണാസിയിലെ കുട്ടികളോടൊത്ത് ഇന്ന് ആഘോഷിക്കൂം

ഒ വിജയകരമായി വിക്ഷേപ്പിച്ചു

ലോകമൊന്നാകെ ഒരു കൂടുംബമായി കാണുകയും പങ്കുവയ്ക്കലും ന് കരുതലും എന്ന തൃത്വത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് ഉപരാഷ്ട്രപതി എം

സംവിധാനത്തിന്റെ പൈലറ്റ് പദ്ധതിയ്ക്ക് ആഭൃന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് തുടക്കം കുറിക്കും

വിജയ്ശർമ്മയെയും പ്രശസ്ത ക്രിക്കറ്റ് കോച്ച് തരക് സിൻഹയെയും ദ്രോണാചാര്യ ധ്യാൻചന്ദ് പുരസ്കാരങ്ങൾക്ക് ശുപാർശ ചെയ്തു

വൈകിട്ട് കുട്ടികളോടൊപ്പം സിനിമാ പ്രദർശനം ആസ്വദിക്കാനും പ്രധാനമന്ത്രി സമയം കണ്ടെത്തും നാളെ മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് ശ്രീ നരേന്ദ്രമോദി തുടക്കം കുറിക്കും ഇതാദ്യമായാണ് പ്രധാനമന്ത്രി തന്റെ മണ്ഡലത്തിൽ ജന്മദിനം ആഘോഷിക്കുന്നത് നാരൂർ ഗ്രാമത്തിലെ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുമായി ഇന്ന് ഉച്ചയ്ക്ക്ശേഷം പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും തുടർന്ന് കാശി വിദ്യാപീഠിലെ വിദ്യാർത്ഥികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും

വരുംമാസങ്ങളിൽ കൂടുതൽ വിക്ഷേപണങ്ങൾക്ക് തയ്യാറെടുക്കുകയാണെന്ന് ഐ എസ് ആർ

കൂടുതൽ വിവരങ്ങളുമായി വിജേഷ്കുമാർ

എസ് ആർ ഒ ചെയർമാൻ ഡോ

ഇന്നലെ രാത്രി ശ്രീഹരികോട്ടയിൽ പി എസ് എൽ

മംഗൾയാൻ വിജയകരമായി നാലുവർഷം പൂർത്തിയാക്കിയെന്നും ഉന്നത നിലവാരമുള്ള ചിത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

വിഭവ സർവേ പരിസ്ഥിതി നിരീക്ഷണം നഗരപരിപാലനം തുടങ്ങിയവയ്ക്കാണ് എസ്

എസ് എൽ

വിജയകരമായ വിക്ഷേപണത്തിന് നേതൃത്വം നൽകിയ ഐ

ഒ ശാസ്ത്രജ്ഞരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഓം പ്രകാശ് റാവത്ത് കമ്മീഷണർ സുനിൽ അറോറ ഡെപ്യൂട്ടി കമ്മീഷണർ സന്ദീപ് സക്സേന എന്നിവർ സംസ്ഥാനത്തെത്തി സജ്ജീകരണങ്ങൾ വിലയിരുത്തും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ ഇന്ന് ജയ്പൂരിൽ ചർച്ച നടത്തുമെന്ന് രാജസ്ഥാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അനന്ത് കുമാർ പറഞ്ഞു മുതിർന്ന ഉദ്യോഗസ്ഥരുമായും ദിദിന സന്ദർശനത്തിനിടെ കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തും

രാജ്യത്ത് കമ്പ്യൂട്ടറുകളും സ്മാർട്ട് ഫോണുകളും ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഇന്നും സെന്ററുകൾ ആരംഭിക്കുന്നത്

ഒരു രാജ്യത്തേയും ആക്രമിക്കാൻ ഇന്ത്യ മുതിർന്നിട്ടില്ലെന്നും എല്ലാവരുമായി സൌഹൃദത്തിൽ കഴിയാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ പാരമ്പര്യവും സംസ്കാരവും പ്രചരിപ്പിക്കാൻ ഇന്ത്യൻ സമൂഹം തയ്യാറാകണമെന്ന് പറഞ്ഞ ഉപരാഷ്ട്രപതി അവരവരുടെ ഉന്നതിക്ക് വലിയ സംഭാവന നൽകിയ മാതൃരാജ്യത്തെ മറക്കാതിരിക്കണമെന്നും ഓർമ്മിപ്പിച്ചു

പ സെർബിയൻ സന്ദർശനക് പൂർത്തിയാക്കിയാണ് ഇന്നലെ വൈകിട്ട് ഉപരാഷ്ട്രപതി മാൾട്ടയിൽ എത്തിയത് സന്ദർശനത്തിന്റെ അവസാനപാദത്തിൽ നാളെ അദ്ദേഹം റൊമാനിയയിൽ എത്തും

ഏകദിന സന്ദർശനത്തിനായി ജമ്മു കാശ്മീരിലെത്തുന്ന ശ്രീ

സംസ്ഥാനത്തെ പൊതുവായ സുരക്ഷാസ്ഥിതിയും ആഭ്യന്തരമന്ത്രി വിലയിരുത്തും ഇന്ന് രാവിലെ ജമ്മുവിലെ ഫ്ളോറയിലെ അതിർത്തിരക്ഷാ സേനാ ആസ്ഥാനത്തെത്തുന്ന ആഭ്യന്തരമന്ത്രി ആധുനിക നിരീക്ഷണ സംവിധാനം ഉദ്ഘാടനം ചെയ്യും

വിജയ്ശർമയ്ക്കൊപ്പം ബോക്സിംഗ് പരിശീലകൻ സി

കുട്ടപ്പ ടേബിൾ ടെന്നീസ് കോച്ച് ശ്രീനിവാസ റാവു എന്നിവരുടെ പേരുകളാണ് ദ്രോണാചാര്യ പുരസ്കാരത്തിനുള്ള പട്ടികയിലുള്ളത് ആജീവനാന്ത സംഭാവനക്കുള്ള ദ്രോണ്ടുചാര്യ പുരസ്കാരത്തിന് തരക് സിൻഹയ്ക്കൊപ്പം ഹോക്കി പരിശ്രീലക്ൻ ക്ലാരൻസ് ലോബോ ജൂഡോ പരിശീലകൻ ജിപ്പാൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിൽ ഭരത് ഛ്വേതി പ്പ് സത്യദേവ് പ്രസാദ് ദാദു ചൌഗുലെ എന്നിവരെയാണ് പ്യോൻചന്ദ് അവാർഡിന് ശുപാർശ ചെയ്തത്

മൂന്നു വിക്കറ്റ് വീഴ്ത്തിയ ഉസ്മാൻ ഖാനും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തിയ ഹസൻ അലിയും ഷദബ്ഖാനുമാണ് പാകിസ്ഥാന്റെ വിജയത്തിന് പിന്നിൽ

മുൻ കോമൺവെൽത്ത് ഗെയിംസ് വെങ്കല മെഡൽ ജേതാവായ പിങ്കി ജാൻഗ്രയ് വെള്ളിയും ലോക ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ സോണിയാ ലാത്തൂറിന് വെങ്കലവുള്ള ലഭിച്ചു

ദുരന്തം നേരിടാൻ എല്ലാ സംവിധാനങ്ങളും പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു

പ്രളയക്കെടുതിയിൽ നിന്ന് തൊള്ളായിരം പേരെ രക്ഷപ്പെടുത്താനായതായി കരോലിന ഗവർണർ റോയി കൂപ്പർ അറിയിച്ചു

ഐ ക്സിനിക് ഇന്ന് പ്രവർത്തനം ആരംഭിക്കും

കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന് അനുവദിച്ച ഇ

ക്ലിനിക്കും ഓഫീസുമാണ് അടിമാലിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്